രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഈ നിർദ്ദേശം നൽകിയത് ഓക്സിജൻ ലഭ്യത മരുന്നുകൾ അടിസ്ഥാന ആരോഗ്യ മേഖല എന്നീ വിഷയങ്ങൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റുകളുമായി സഹകരിച്ച് പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ അടിയന്തരമായി ആരംഭിക്കാൻ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു കോവിഡ് നേടിരാൻ സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഏജൻസികളുമായി ചേർന്ന് കൃത്യമായ മാർഗ്ഗ നിർദ്ദേശങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിക്കണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചു

മെയ് ഒന്നു മുതൽ ഈ പ്രായപരിധിയിൽപ്പെട്ടവർക്ക് വാക്സിൻ നൽകിത്തുടങ്ങും

കോവിഡ് പോർട്ടലിൽ രജിസ്ട്രേഷൻ നടപടികൾ വൈകീട്ടോടെയായിരിക്കും ലഭ്യമാവുകയെന്നാണ് റിപ്പോർട്ട്

ദേദ കോവിഡ് നിയന്ത്രണത്തിന് കൂടുതൽ ആളുകളുടെ സേവനം അനിവാര്യമായ സാഹചര്യത്തിൽ കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമാകാൻ ജനങ്ങൾ മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ആരോഗ്യ മേഖലയിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണക്കുറവ് വലിയ പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു

വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരവും കേരള പകർച്ചവ്യാധി ഓർഡിനൻസ് പ്രകാരവും കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് തടയാൻ പൊലീസ് മീഡിയ സെന്ററിനും സോഷ്യൽ മീഡിയ സെല്ലിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

സ്വന്തം ജാഗ്രതക്കുറവ് മൂലം പ്രിയപ്പെട്ട ഒരാളും നഷ്ടപ്പെടുന്നില്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് മേഖലകളിൽ രോഗബാധിതരെയും ക്വാറന്റൈനിൽ കഴിയുന്നവരെയും നിരീക്ഷിക്കാനും സഹായിക്കാനും തൃശൂരിൽ പ്രവർത്തിച്ചുവരുന്ന വനിതാ ബുള്ളറ്റ് പട്രോൾ സംഘത്തിന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനും ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ദേദ കേന്ദ്രത്തിന്റെ വാക്സിൻ നയത്തിനെതിരെ എൽ ഡി

മുന്നണി പ്രവർത്തകരും അനുഭാവികളും വീടുകൾക്ക് മുന്നിൽ വൈകീട്ട് അഞ്ച് മുതൽ അഞ്ചര വരെ പോസ്റ്ററുകൾ ഒട്ടിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് പ്രതിഷേധിക്കുന്നത് ദേദ കേരളത്തിൽ ഇന്നലെ രണ്ട് ലക്ഷത്തിലേറെ ഡോസ് കൊവിഡ് വാക്സിൻ എത്തിച്ചു

ദ്ദേ സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർദ്ധന രേഖപ്പെടുത്തി

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗ സ്ഥിരീകരണം

ദ്ദേ കോവിഡ് തീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനത്തിന് മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്നലെ മുതൽ ഒരുമാസത്തേക്ക് ജീവനക്കാരെ ഊഴമിട്ട് ഡ്യൂട്ടിക്ക് ചുമതലപ്പെടുത്തും

ഡ്യൂട്ടി ജീവനക്കാർ മാസ്കും സാനിറ്റൈസറും ഉൾപ്പെടെ രോഗപ്രതിരോധ മാർഗങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് സേവനങ്ങൾ പരമാവധി ഓൺലൈനിൽ നൽകാൻ നടപടിയെടുക്കണമെന്നും മാർഗ നിർദ്ദേശത്തിൽ പറയുന്നു

ഈ സാഹചര്യത്തിൽ തടവുകാർക്ക് പരോൾ നൽകുന്നതിനാവശ്യമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച് വകുപ്പ് തലത്തിൽ തീരുമാനിക്കുമെന്ന് ജയിൽ ഡിഐജി അറിയിച്ചു ദ്ദേ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ പത്ത് തദ്ദേശ സ്ഥാപന പരിധികളെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു

കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു

കടകളും മറ്റ് സ്ഥാപനങ്ങളും രാവിലെ ഏഴുമുതൽ പത്തുവരെ മാത്രമേ തുറക്കാവൂ എന്ന് ഉത്തരവിൽ പറയുന്നു ദേദ കർണാടകയിലെ ലോക്ഡൌണിനെ തുടർന്ന് രണ്ടാഴ്ചത്തേക്ക് ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമേ അതിർത്തി വഴി അവിടേക്ക് പോകാനാവൂ എന്ന് വയനാട് ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു പൊതു സ്വകാര്യ വാഹനങ്ങൾക്ക് ജില്ലാ അതിർത്തി ചെക്പോസ്റ്റുകളിൽ വരെയായിരിക്കും പോകാൻ അനുമതി

കൊല്ലത്ത് ഇന്ന് കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ കുറവായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും ഇന്ന് മുൻഗണന

ദേദ വോട്ടെണ്ണൽ ദിവസമായ മെയ് രണ്ടിന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗ്ഗ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ മെയ് ഒന്നിനെടുത്ത ആന്റിജൻ പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്നും അറിയിപ്പിൽ പറയുന്നു

എൽ ക്രിക്കറ്റിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയം അഹമ്മദാബാദിൽ ഇന്നലെ ഡൽഹി ക്യാപ്പിറ്റൽസിനെ ഒരു റണ്ണിനാണ് ബാംഗ്ലൂർ പരാജയപ്പെടുത്തിയത് ഇന്ന് വൈകീട്ട് ഏഴരയ്ക്ക് ഡൽഹിയിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

കുട്ടികൾക്കായി നിരവധി കഥകളും ലഘു നോവലുകളും സുമംഗല എഴുതിയിട്ടുണ്ട് നടന്നു തീരാത്ത വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു

ദേദ ഉത്തർപ്രദേശിൽ തടവിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ധിക് കാപ്പനെ ഡൽഹി എയിംസിലേക്ക് മാറ്റണമെന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കേരളാ പത്രപ്രവർത്തക യൂണിയനും കാപ്പന്റെ ഭാര്യയും നൽകിയ അപേക്ഷകളാണ് കോടതി പരിഗണിക്കുന്നത് കാപ്പന്റെ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് ഗവൺമെന്റിനോട് ഇന്നലെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ദേദ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അറ്റകുറ്റപണികൾക്കായി ഇടുക്കി കല്ലാർ ഡാമിന്റെ ഒരു ഷട്ടർ രാവിലെ പത്തുമണിയോടെ പത്ത് സെന്റിമീറ്റർ ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു പത്ത് ക്യൂമെക്സ് വെള്ളം പുഴയിലേക്ക് തുറന്നുവിടും

ഇതിന്റെ ഭാഗമായി രാവിലെ പത്തിന് സൈറൺ മുഴക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു

സംഭവത്തോട് ബന്ധപ്പെട്ട് തൈക്കാട്ടുശേരി സ്വദേശി സുന്ദരൻ എന്നയാളെ പൊലീസ് അറസ്റ്റ് ചെയ്തു